് ഝാർഖണ്ഡിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി ഏഴ് മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു

ന്യൂഡൽഹിയിൽ എൻ സി സിയുടെ വാർഷിക റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ഉദയകുമാർ

അന്തരീക്ഷമാണ് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും വ്യോമാക്രമണങ്ങളിലൂടെയും തീവ്രവാദ പ്രവർത്തനങ്ങളെ രാജ്യം നേരിടുന്നതായും ശ്രീ

കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി ഇന്ത്യ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ശ്രീ

വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന അവഗണന പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനും എൻ

എ ഗവൺമെന്റിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു

പാകിസ്ഥാൻ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും പരസ്പരമുള്ള അനാവശ്യ ഇടപെടലുകളിൽ നിന്നും വിട്ടു നിൽക്കുകയാണെന്നും ശ്രീ

ഭീകരവാദ പ്രവർത്തനങ്ങൾ തുടച്ചു നീക്കുന്നതിന് ഇന്ത്യ മുൻപന്തിയിൽ തന്നെ ഉണ്ടാക്ടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ഭീകരവാദികൾക്ക് സംരക്ഷണസ്റ്റ് ് സഹായങ്ങളും നൽകുന്ന നടപടികൾ പാകിസ്ഥാൻ ഉട്ൻ ്അവസാനിപ്പിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു

അസമിന്റെ സാംസ്കാരിക പൈതൃകം കരകൌശല വൈദഗ്ധൃവും ആവിഷ്ക്കരിക്കുന്ന നിശ്ചല ദൃശ്യമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒഡീഷ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചു

ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ വൃാപാരം സാമ്പത്തികം ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം എന്നിവ സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ചകൾ നടത്തി

ബാങ്കുകളിൽ പരിഹരിക്കപ്പെടാതെ മന്ത്രാലയം കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നിയോഗിക്കാനും ധനമന്ത്രാലയം നിർദ്ദേശം നൽകി

പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന പ്രതിഷേധങ്ങളിൽ പ്രകോപനപരമായി പ്രസംഗങ്ങൾ നടത്തിയെന്നാരോപിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഷർജീൽ ഇമാമിനെതിരെ ഷർജിലിനെ പൊലീസ് ചോദ്യം ചെയ്ത് വരികയാണ്

നിശ്ചിതസമയത്തിനുള്ളിൽ നാഗ്പൂർ ക്ട്രിട്ടോ ഒന്നാംഘട്ടത്തിന്റെ പണി പൂർത്തിയാക്കുമെന്നും അദ്ദേഹൃദ്ട് അറിയിച്ചു ആഭൃന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കത്ത്ക്കത്രത്തിൽ മെട്രോയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു സുഭാഷ് നഗർ മെട്രോ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും പങ്കെടുത്തു

ഗവർണ്ണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുകയെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പതിനാലാം നിയമസഭയിലെ അംഗമായിരുന്ന മുൻമന്ത്രി തോമസ് ചാണ്ടിക്ക് സഭ വെള്ളിയാഴ്ച ചരമോപചാരം അർപ്പിക്കും വ്യാഴാഴ്ച സഭാസമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട്

ജയ്പ്പൂരിൽ സംഘടിപ്പിച്ച യുവജനറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ

ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ യുവാക്കളുടെ ശേഷി പാഴാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു യുപിഎ ഗവൺമെന്റിന്റെ കാലത്ത് ഒൻപത് ശതമാനം വളർച്ചാ നിരക്കാണ് രാജ്യത്തുണ്ടായതെന്നും അത് ഇപ്പോൾ വളരെയധികഠ കുറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലില്ലാത്ത യുവാക്കളുടെ ദേശീയ രജിസ്റ്റർ ചടങ്ങിൽ ശ്രീ രാഹുൽഗാന്ധി പ്രകാശനം ചെയ്തു രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ട് ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അതേസമയം ഗവൺമെന്റ് സംവിധാനങ്ങൾ റാലിക്കുവേണ്ടി ദുരുപയോഗം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സതീഷ് പുനിയ കുറ്റപ്പെടുത്തി ന്യൂസ്ഡെസ്ക് ആകാശവാണി

ജമ്മു കശ്മീർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതികൾക്ക് ധനസഹായം നൽകിയിരിക്കുന്നത്

സംഭവം അന്വേഷിക്കണമെന്നും പാകിസ്ഥാനിലെ ഹിന്ദു മതക്കാർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സൂരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്താൻ അടിയന്തിര നടപടികൾ കൈക്കൊള്ളണമെന്നും ഇന്ത്യ പാകിസ്ഥാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാരൃ മന്ത്രാലയവൃത്തങ്ങൾ പറഞ്ഞു

ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസ്സർ ബിൻ ഖാലിഫാ അൽ താനി രാജിവെച്ചതിനെത്തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചതെന്ന് ഖത്തർ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു

അഞ്ച് കളികളുള്ള പരമ്പരയിൽ മുൻപ് നടന്ന രണ്ടു മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പുമായാണ് നാളെ കളിക്കളത്തിലിറങ്ങുന്നത്

ഗ്രൂപ്പ് ബി യിലെ ടോപ്പർമാരായ വെസ്റ്റിന്റീസ് ഗ്രൂപ്പ് എ യിലെ രണ്ടാം സ്ഥാനക്കാരായ ന്യൂസിലന്റിനെയാണ് നേരിടുക

പ്രധാനമന്ത്രി കിസാൻ സംപാദയോജനയുടെ കീഴിൽ ഐസ്വാളിൽ ഇന്നലെ നടന്ന പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷി അനൂബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരും സ്വയംസഹായ സംഘങ്ങളും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു